കേരളത്തിലെ പ്രളയക്കെടുതിയെ ഗുരുതര സ്വഭാവമുള്ള ദുര ന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു

ആരോഗ്യ വകുപ്പ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മന്ത്രി കെ

വൈദ്യുതി വിതരണം പുനസ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാന ത്തിൽ നടപടിയെടുക്കുമെന്ന് കെഎസ്ഇബി

ങ്ങ ൽ സംസ്ഥാനത്തെ പ്രളയക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്ത നങ്ങളും തുടർ നടപടികളും ചർച്ച ചെയ്യാൻ ഇന്ന് തിരുവനന്തപു രത്ത് സർവ്വക്ഷിയോഗം ചേരും വൈകീട്ട് നാലിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം രക്ഷാപ്രവർത്തനങ്ങൾ അവ സാന ഘട്ടത്തിലാണെന്നും ഇനി ദുരിതാശ്വാസ പ്രവർത്തന ങ്ങൾക്കാണ് മുൻതൂക്കമെന്നും മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയി രുന്നു ഇതുസംബന്ധിച്ച ചർച്ചകളായിരിക്കും യോഗത്തിൽ ഉണ്ടാ പ്രളയ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് മന്ത്രി സഭാ വുക യോഗവും ചേരുന്നുണ്ട് കേരളത്തിലെ പ്രളയക്കെടുതിയെ ഗുരുതര സ്വഭാവമുള്ള ദൂര ന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു ഇതോടെ സംസ്ഥാനത്തിന് കേന്ദ്ര ത്തിൽ നിന്ന് കൂടുതൽ ധനസഹായവും മറ്റ് സഹായങ്ങളും ലഭി ക്കാൻ വഴിയൊരുങ്ങും വെള്ളപ്പൊക്കത്തിന്റേയും ഉരുൾപ്പൊട്ടലി ന്റേയും തീവ്രതയും വ്യാപ്തിയും കണക്കിലെടുത്താണ് കേരളത്തിലെ കാലവർഷ കെടുതിയെ ഗുരുതര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

വെള്ളപ്പൊ ക്കത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവ ശ്യപ്പെട്ടെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതി നാൽ അതിന് കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി മുഖ്യമന്ത്രി പറ ഞ്ഞു

ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് വീടു കൾ വൃത്തിയാക്കാൻ ശുചീകരണ കിറ്റുകൾ നൽകും ബ്ലീച്ചിംഗ് പൌഡറും അണുനാശിനികളും ക്ലോറിൻ ഗുളികകളും കിറ്റിൽ ഉണ്ടാ യിരിക്കും

പ്രള യത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന മുൻ കേന്ദ്രമന്ത്രി എ

ആന്റണിയുടെ ആവശ്യത്തോട് തിരുവനന്തപുരത്ത് പ്രതികരി ക്കുകയായിരുന്നു അദ്ദേഹം

കേരളത്തിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറക്കു മതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കസ്റ്റംസ് തീരുവ യും ചരക്ക് സേവന നികുതിയും ഒഴിവാക്കിയതായി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അറിയിച്ചു ഇതിന്റെ ഉത്തരവ് ഇന്ന് പുറപ്പെടുവി ക്കും ഡിസംബർ ദ്യവരെയായിരിക്കും ഇളവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പ്രളയ മേഖലയിൽ ഇതുവരെ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മറ്റി യോഗം അറിയിച്ചു

ശൈലജ തിരു വനന്തപുരത്ത് അറിയിച്ചു

ഇതിന്റെ ഭാഗ മായി കൺട്രോൾ റൂമും കോൾ സെന്ററും പ്രവർത്തിച്ചു തുടങ്ങി ജില്ലാതല കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ കൃാമ്പുകളിലെ പ്രശ്നങ്ങളും ജീവനക്കാരുടേയും മരുന്നുകളുടേയും കുറവും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൺട്രോൾ റൂമിൽ നിന്ന് ഉടൻ നടപടിയുണ്ടാവും വയനാട് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളെ ഏറ്റവും കൂടുതലായി വെള്ളപ്പൊക്കം ബാധിച്ച ജില്ലകളായി പരിഗണിക്കും കോഴിക്കോട് കോട്ടയം കണ്ണൂർ ജില്ലകളെ വലുതായി വെള്ളപ്പൊക്കം ബാധിച്ച ജില്ലകളായും കണ ക്കാക്കും മറ്റ് ജില്ലകളെ സാരമായി വെള്ളപ്പൊക്കം ബാധിച്ച ജില്ല യായും തരംതിരിച്ചു ഇവിടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക നോഡൽ ഓഫീസർമാരേയും നിയമിച്ചു ആരോഗൃപ്രവർത്തനങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളു മായി സഹകരിച്ച് മാലിനൃ നിർമ്മാർജ്ജനം അതിവേഗം നടപ്പാക്കും വെള്ളം കയറിയ സ്ഥലങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും ക്യാമ്പുകളിലും ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം ഇറങ്ങിയ മേഖലകളിൽ പാമ്പു ശല്യം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രികൾ മുതൽ ആന്റി വെനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മുടങ്ങിയ വൈദ്യുതി വിത രണം പുനസ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കു മെന്ന് കെഎസ്ഇബി അറിയിച്ചു

അഞ്ച് ചെറുകിട വൈദ്യുതി നിലയങ്ങൾ വെള്ളം കയറി തകർന്നു

കണക്ഷൻ പുനസ്ഥാപിക്കാൻ കഴിയാത്ത വീടുകളിൽ താൽക്കാ ലികമായി ഇഎൽസിബി അടക്കം ഒരു ലൈറ്റും ഒരു പ്ലഗ്ഗും സ്ഥാപിച്ച് വൈദ്യുതി നൽകുമെന്ന് കെഎസ്ഇബി അറിയിച്ചു പ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്ത് നിലച്ച ഗതാഗത സംവിധാന ങ്ങൾ ഏറെക്കുറെ പുനസ്ഥാപിച്ചു കാസർകോട് മുതൽ തിരുവന ന്തപുരം വരെ ട്രെയിൻ ഗതാഗതം ഇന്നലെ പുനരാരംഭിച്ചു എറണാ കുളം ഷൊർണൂർ പാതയിൽ ഇന്നലെ മുതൽ വണ്ടികൾ ഓടിത്തു ടങ്ങി പലയിടത്തും വേഗം കുറച്ചാണ് ട്രെയിനുകൾ കടത്തിവിടുന്ന ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ രണ്ട് ദിവസം വേണ്ടിവരു മെന്ന് റെയിൽവേ അറിയിച്ചു നിലവിൽ പത്തിലധികം സ്ഥലങ്ങളിൽ വേഗനിയന്ത്രണമുണ്ട്

തൃശൂരിൽ നിന്ന് ദേശീയ പാതയിലൂടെ റോഡ് ഗതാഗതം പുന രാരംഭിച്ചു കെഎസ്ആർടിസി മുഴുവൻ സർവീസുകളും ഇന്ന് ആരം ഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനം പൂർണമായതായി കലക്ടർ മുഹമ്മദ്

സഫീറുള്ള അറിയിച്ചു

വെള്ളം ഇറങ്ങി തുടങ്ങിയ തോടെ പാമ്പു ശലൃം പലയിടത്തും രൂക്ഷമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആലപ്പൂഴ ജില്ലയിൽ മഴക്കെടുതി നിയന്ത്രണ വിധേയമായി രാവിലെ ആരംഭിച്ച അവസാന ഘട്ട രക്ഷാപ്രവർത്തനത്തിൽ ദുരന്ത നിവാരണ സേനാ അംഗങ്ങളും കര നാവിക സേനാ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് തുരുത്തുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കണ്ടെ ത്തുകയാണ് ലക്ഷ്യം

ഉരുൾപൊട്ടലിൽ തകർന്ന കട്ടിപ്പന കെഎസ് ആർടിസി ഡിപ്പോയിലെ സർവ്വീസുകൾ ഇന്ന് പുനരാരംഭിക്കും കട്ടപ്പന പഴയ ബസ്സ്റ്റാന്റിൽ നിന്നായിരിക്കും ബസ്സുകൾ ഓടുക പത്തനംതിട്ട ജില്ലയിൽ ജല നിരപ്പ് താഴ്ന്നു തുടങ്ങി വെള്ള ക്കെട്ടും ചെളിയും കാരണം പ്രധാന റോഡുകളിൽ പൂർണതോതിൽ ഗതാഗതം പുനസ്ഥാപിക്കാനായില്ല

സി റോഡിൽ ഗതാഗതം ആരംഭിച്ചു

് വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ച് ദിവസമായി അടച്ചിട്ടിരി ക്കുന്ന പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിച്ച് കാൽനട യാത്ര ഉടൻ അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പാലത്തിന്റെ ഉപരിതലത്തിലെ അറ്റക്കുറ്റപ്പണികൾ പൂർത്തിയാക്കി ചെറിയ വാഹ നങ്ങൾ കടത്തിവിടും എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ വലിയ വാഹനങ്ങൾ അനുവദിക്കു

മോശം കാലാവ സ്ഥയെത്തുടർന്ന് ഹെലികോപ്റ്ററുകളുടെ സേവനം പ്രയോജനപ്പെ ടുത്താനായില്ല

മഴയുടെ ശക്തി കുറഞ്ഞ സാചര്യ ത്തിൽ പയ്യന്നൂർ തളിപ്പറമ്പ് കേളകം എന്നിവിടങ്ങളിലെ കൃാമ്പൂ കൾ പിരിച്ചുവിട്ടു

കേരളം നേരിടുന്ന ദുരിതം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറി കടക്കാൻ കഴിയുമെന്ന് മന്ത്രി ഡോ

എട പ്പാൾ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പൂകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി വനിതകളുടെ ഗുസ്തിയിൽ വിനേഷ് ഫൊഗാട്ട് ജപ്പാൻ താരത്തെ തോൽപ്പിച്ചാണ് സ്വർണം നേടിയത് ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ്